ഗുണഭോക്താക്കൾക്കുള്ള ബൃഹത് ധനസഹായ വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവ്വഹിച്ചു

കൈമാറിയത് കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിയ ഉറപ്പ് ലംഘിച്ചാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ബംഗളുരു എഫ് സി യെ നേരിടും

തുടർന്ന് പദ്ധതി ഗുണഭോക്താക്കളുമായി പ്രശ്ച് നരേന്ദ്രമോദി ആശയവിനിമയം നടത്തി

ഇന്നലെ നടത്താനിരുന്ന ചർച്ച ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു

കർഷകരുടെ ആവശ്യങ്ങളങ്ങിയ കരട് സമർപ്പിക്കാനായി ഒരു അനൌപചാരിക സംഘം രൂപീകരിക്കാൻ കർഷക് സംഘടനകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി നരേന്ദ്രസിംഗ് തോമർ വെളിപ്പടുത്തിയിരുന്നു മഞ്ഞുകാലത്ത് സമരം ചെയ്യുന്ന കർഷകരുടെ ആരോഗൃ സ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഡോക്ടർ മാരടക്കം കോവിഡ് മുൻനിരപ്പോരാളികളുടെ ശ്രമഫലമായാണ് രോഗബാധിതരുടെ എണ്ണം കുറയുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

കോവിഡ് പ്രതിരോധ കുത്തിവെയ്പ് നടപടികൾ സംസ്ഥാനത്ത് ഊർജ്ജിതമായി നടക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു

തിരുവനന്തപുരം എറണാകുളം വിമാനത്താവളങ്ങളിലാണ് വാക്സിനുകൾ എത്തുന്നതെന്ന് മന്ത്രി കെ കെ ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു

പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വാക്സിൻ ഒഡീഷയിൽ എത്തിച്ചത്

വിമാനത്താവളം കൈമാറുന്നതിനെതിരായ നടപടികൾ ്സ്ത്രംസ്ഥാന സർക്കാർ തുടർന്നു വരികയാണെന്നും വൃക്തമായി പ്പുഉദ്ദേശൃ ശുദ്ധിയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും മുഖ്യമന്ത്രി ചോദൃത്തിന് മറുപടിയായി പറഞ്ഞു

കസ്റ്റംസ് നോട്ടീസ് പ്രകാരം കൊച്ചിയിലെ ഓഫീസിൽ ഹാജരായ ഹരികൃഷ്ണൻ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ തുറന്ന് പറയാൻ നിർബന്ധിച്ചതുൾപ്പെടെയുള്ള ദുരനുഭവങ്ങൾ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചിരുന്നു

ജോയിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി

ജാബുവ ഹർദ മൻദ്സൌർ ദ് ജില്ലകളിൽ പക്ഷിപ്പനി കണ്ടെത്തി

ഇവിടെ നിന്ന് എടുത്ത സാമ്പിളുകൾ ഭോപ്പാലിലെ ഹൈ സെക്യൂരിറ്റി അനിമൽ ഡിസീസസ് ലബോറട്ടറിയിൽ പരിശോധിച്ചതിന്റെ ഫലം എത്തിയതോടെയാണ് വൈറസ് സ്ഥിരീകരിച്ചത് പരിശോധനാ ഫലം വന്നതോടെ തന്നെ ജില്ല കളക്ടർ എ

രോഗ ബാധ സ്ഥിരീകരിച്ച പ്രദേശത്തിന് ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പക്ഷികളെ കൊന്ന് നശിപ്പിക്കുന്നതിന് തീരുമാനിച്ചു

സ്ഥാനമൊഴിയുന്ന പ്രസിഡൻറ് ഡൊണാൾഡ് ട്രിപ്പ് ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചു

അപകടത്തിൽ ജീവൻ നഷ്ടമായവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ രണ്ട് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു

പശ്ചിമബംഗാളിലെ ജൽപായ്ഗുഡിയിലും ഗുജറാത്തിലെ സൂററ്റിലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അപകടം ഉണ്ടായത്

ഗുരുവിന്റെ ജന്മസ്ഥലമായ പാറ്റ്ന സാഹിബിലെ തഖത്ത് ശ്രീ ഹർമന്ദിർ സാഹിബ് ഗുരുദാരയിലാണ് പ്രധാന ആഘോഷ പരിപാടികൾ

ഗുരുവിന്റെ ജീവിതം മാനവരാശിക്ക് പ്രചോദനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

സമൂഷ്ട്ത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരുന്നു ഗുരു ഗോബിന്ദിന്റെ ജീവിത്തമെന്ന് പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു